പുതിയ വിദ്യാഭ്യാസിന്നയ്ക വിദ്യാർഥികളുടെ ശാക്തീകരണത്തിന് ്വഴി തുറക്കുമെന്ന് പ്രധാനമന്ത്രി

പ്രതികൂല കാലാവസ്ഥയ്ക്കിടയിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ് പോലീസും ഫയർഫോഴ്സും ദേശീയ ദുരന്തനിവാരണ സേനയും സംയുക്തമായാണ് തിരച്ചിൽ നടത്തുന്നത്

ഇതിനുപുറമേ പരിക്കേറ്റ വരുടെ മുഴുവൻ ചികിത്സാചെലുക്കൂർ സ്സ്ഥാന സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി ആറിയിച്ചു മരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയൂടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപയുള്ടി സ്ഹായധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്

കൂടുതൽ വിവരങ്ങളുമായി കരോൾ എബ്രഹാം വോയിസ് വിദ്യാഭ്യാസ മേഖലയുടെ സമഗ്രമായ പരിഷ്കരണം കാലഘട്ട ത്തിന്റെ ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ആഗോള നിലവാര ത്തിലേക്ക് ഉയരേണ്ടതുണ്ട് എന്നും അഭിപ്രായപ്പെട്ടു ദേശീയ വിദ്യാഭ്യാസ നയം പൂർണമായ രീതിയിൽ തന്നെ നടപ്പാക്കേണ്ട തുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു നയം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കോൺക്ലേവിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാകുമെ ന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു ആഗോള പൌരന്മാരായി മാറാൻ രാജ്യത്തെ വിദ്യാർഥികളും യൂവാക്കളും പരിശ്രമിക്ക ണമെന്ന് ആഹ്വാനം ചെയ്ത പ്രഗ്ഗാനമ്ന്ത്രി പാരമ്പര്യത്തെ കൈവിടരുതെന്നും ഓർമിപ്പിച്ചു

ഉന്നതവിദ്യാഭ്യാസരംഗത്ത് ഇഷ്ടമുള്ള കോഴ്സുകൾ തിരഞ്ഞെടു ക്കാൻ വിദ്യാർഥികൾക്ക് പുതിയ പാഠ്യപദ്ധതി കൂടുതൽ സ്വാതന്ത്രൃം നൽകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ന്യൂസ് ഡെസ്ക് ആകാശവാണി

കൈത്തറി കരകൌശല മേഖല കളിൽ പ്രവർത്തിക്കുന്നു് ് എല്ലാ പൌരന്മാർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു

സമുദ്രത്തിന് അടിയിലൂടെയുള്ള ഒ

കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന ഉത്പന്നുങ്ങൾ എത്രയും വേഗം വിപണിയിലെ ത്തിക്കുന്നത് ലക്ഷ്യമിട്ടുള്ളതാണ് കിസാൻ റെയിൽ സൌകര്യം മഹാരാഷ്ട്രയിലെ ദേവ്വ്ലാലിയിൽ നിന്നും ബിഹാറിലെ ദാനാപൂരിലേക്കാണ് ട്രെയിനിന്റെ ആദ്യ യാത്ര

ശ്രീനഗറിലെ രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ജമ്മു കാശ്മീർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തൽ സത്യവാചകം ചൊല്ലിക്കൊടുത്തു

രാജ്യസുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും ഇവ ഭീഷണിയാണെന്ന കാരണം ചൂണ്ടിക്കാട്ടി യാണ് നിരോധനം

സുരക്ഷാ കാരണങ്ങളെ തുടർന്ന് ടിക് ടോക്കും വീ ചാറ്റും നിരോധിച്ച ആദ്യ രാജ്യം ഇന്ത്യയാണ്

ബുധനുഴ്ച ീനടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ മൂന്നിൽ രണ്ട് സീറ്റുകളാണ് സ്ത്രഖ്യം കരസ്ഥമാക്കിയത്

കുപ്വാര ജില്ലയിലെ നൌഗാം മേഖലയിൽ അതിർത്തി രേഖയിലാണ് വെടിവയ്പ് ഉണ്ടായത് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചുടിച്ചു

നടന്റെ മരണം സംബന്ധിച്ച് സിബിഐ അന്വേഷണം ്നിട്ത്താനുള്ള ബീഹാർ സർക്കാരിന്റെ ശുപാർശ അംഗീകരിച്ചത്ത്യി കേന്ദ്രം ഇന്നലെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു